പുതിയ മാനങ്ങൾ നൽകാനായത് ചരിത്രനേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രോഗബാധയില്ല

നിലയിലാകുമെന്ന് ബാങ്ക് സി ഇ

ബംഗ്ലാദേശിൽ ഷേഖ് മുജീബുർ റഹ്മാന്റെ ജന്മ ശതാബ്ദി ആഘോഷങ്ങളെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

കര സമുദ്ര അതിർത്തികൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ സൌഹാർദ്ദത്തോടെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ വ്യാപാര പങ്കാളി മാത്രമല്ല വികസന പങ്കാളി കൂടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കഴിഞ്ഞ അഞ്ചുവർഷം ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രബന്ധം സുവർണ ദിശയിലായിരുന്നു ബംഗബന്ധു ബംഗ്ലാദേശിനെ ഏറ്റവും അനുഗുണവും വളർച്ചയുള്ളതുമായ രാജ്യമാക്കി മാറ്റിയെന്നും ശ്രീ

ബംശ്ലബന്ധുവിൽ നിന്നും ഊർജ്ജമുൾക്കൊണ്ട് ഷേഖ് ഹസീനയുടെ ന്യേതൃത്വത്തിൽ ബംഗ്ലാദേശ് മുന്നോട്ടു നീങ്ങുമെന്നും ശ്രീ

മാധ്യമങ്ങളുടെ സഹായത്തോടെ പാർലമെന്റ് അംഗങ്ങൾ അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് ജോഷി മാധ്യമങ്ങളെ അറിയിച്ചതാണിത് കൊറോണ വൈറസ് നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ യോഗത്തിൽ അവതരിപ്പിച്ചു

ഈ സാഹചര്യത്തിൽ സാർക് രാജ്യങ്ങളുമായി ഇന്ത്യ സംഘടിപ്പിച്ച വീഡിയോ കോൺഫറൻസിനെക്കുറിച്ചും അറേബ്യൻ കിരീടാവകാശി പരാമർശിച്ചു

മഹ്റാരാഷ്ട്രയിലാണ് മൂന്നാമത്തെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

രോഗബാധ സംശയിക്കുന്നവർ നിരീക്ഷണത്തിലാകാൻ വിസമ്മതിച്ചാൽ അവരെ നിർബന്ധപൂർവ്വം നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും

കിഴക്കൻ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലാണ് രോഗി കഴിയുന്നത്

സർക്കാർ എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വൻകിട വാണിജ്യകേന്ദ്രങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻകരുതലുണ്ട്

ലഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേഷ്ടാവ് ബസീർ അഹമ്മദ് ഖാൻ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കി

മാഹിയിൽ രോഗം സ്ഥിരീകരിച്ച സ്ത്രീയെ കർശന നിരീക്ഷണത്തിലാക്കി ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയ ഇവർ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു

ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വായ്പയെടുത്ത സ്ഥാപനങ്ങൾക്കും വൃക്തികൂൾക്കും തിരിച്ചടവിനുള്ള കാലാവധി ദീർഘിപ്പിക്കുക ഉൾപ്പെടെ റിസർവ്ബ്ലാങ്കിന്റെ മാർഗ നിർദേശങ്ങളാണ് ബാങ്ക് പ്രതിനിധികളുട്ടെ ്യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ടുവെച്ചത്

ഏറ്റവും ഉയർന്ന നിരക്ക് മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ചർച്ച്ഗേറ്റ് ബാന്ദ്ര മുംബൈ സെൻട്രൽ സ്റ്റേഷനുകളിലാണ്

കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈനയുൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ലെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും മേഖലാ സമഗ്രതയെയും മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കണം എന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് അഭിപ്രായപ്പെട്ടു

ആശങ്കുകൾക്ക് അടിസ്ഥാനമില്ലെന്നും എല്ലാ ശാഖകളിലും എ ടി എമ്മുകളിലൂടെയും സാമ്പത്തിക ഇടപാട് നടത്താൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു

ജെ

കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ഭരണഘടനാ തസ്തികകളിലേയ്ക്കുള്ള നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് സംഘം അഭ്യർത്ഥിച്ചു

പി ഗോപാൽ റെഡ്സിയെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ കമൽനാഥ് സർക്കാർ തിങ്കളാഴ്ച ഉത്തരവിറക്കിയിരുന്നു കൂടാതെ മധ്യപ്രദേശ് വനിതാ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ യുവജന ക്ഷേമ കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലേയ്ക്ക് പുതിയ തലവൻമാരെ കമൽനാഥ് സർക്കാർ നിയമിച്ചിരുന്നു